നിയ്മു ഭേദഗതിക്കെതിരായ ഹർജികളിൽ സുപ്രീംകോടതി കേന്ദ്ര ഗവ്ടൺമെന്റിന് നോട്ടീസ് അയച്ചു

ഇന്ത്യൻ യൂണിയൻ മുസ്തീം ലീഗും കോൺഗ്രസ് നേതാവ് ജയറാം രമേഷും ഉൾപ്പെടെയുള്ളവരാണ് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബഞ്ചാണ് കേസ് പരിഗണിച്ചത്

ഭാനുമതിയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ബഞ്ചാണ് വിധി പറയുക പ്രതി യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു മനുഷ്യത്വം വിലപിക്കുന്ന തരം കുറ്റകൃതൃങ്ങളിൽ ഒന്നാണിതെന്നും അദ്ദേഹം പറഞ്ഞു വിധി നടപ്പാക്കുന്നത് വൈകിപ്പിക്കാനുള്ള ശ്രമമാണ് പ്രതികൾ നടത്തുന്നതെന്നും കേസിൽ നീതി വേഗത്തിൽ ഉറപ്പാക്കണമെന്നും തുഷാർ മേത്ത പറഞ്ഞു

സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അഞ്ച് മണ്ഡലങ്ങളിൽ വൈകിട്ട് മൂന്നുമണിക്ക് പ്രചാരണം തീരും

ജെ പി കോൺഗ്രസ് ജെ എം എം തുടങ്ങിയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ ഇന്ന് പ്രചാരണത്തിനെത്തുന്നുണ്ട്

ന്യൂഡൽഹിയിൽ ആറാമത് രബീന്ദ്രനാഥ ടാഗോർ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മിശ്രീ വിജയ

വാർഷിക പരീക്ഷകളുടെ തീയതിയും മറ്റ് വിവരങ്ങളും അറിയുന്നതിന് വിദ്യാർത്ഥികൾക്ക് സിബിഎസ്ഇയുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം

പരീക്ഷ കുട്ടികളിലുാക്കുന്ന സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള ഉപായങ്ങൾ പരീക്ഷ പേ ചർച്ച എന്ന ഈ പരിപാടിയിലൂടെ പ്രധാനമന്ത്രി പറഞ്ഞു കൊടുക്കുള്ളു അടുത്ത മാസം ന്യൂഡൽഹിയിലെ തൽക്കത്തോറ സ്ക്കേസിയ്ത്തിലാകും പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായി സംവദിക്കു്നു പരിപാടിയുടെ മൂന്നാമത് എഡിഷൻ നടക്കുക

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ടി കൌൺസിൽ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും നികുതി വരുമാനം വർദ്ധിപ്പിക്കാനായി നികുതിപിരിവ് ഘടന കൌൺസിൽ പുനഃപരിശോധിക്കാൻ സാധ്യതയുണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അദ്ധ്യക്ഷതയിലാണ് കൌൺസിൽ ചേരുന്നത്

പുതിയ സംവിധാനം തടസ്സങ്ങളില്ലാത്ത ഗതാഗതം ഉറപ്പുവരുത്തുകയും ഇന്ധന നഷ്ടവും വായു മലീനീകരണവും കുറ്റയ്ക്കുകയും ചെയ്യും ഒരു കോടിയോളം ഫാസ്ടാഗുകൾ ഇതിനകം വിതരണം ചെയ്തുവെന്നും ശ്രീ ഗഡ്കരി പറഞ്ഞു

പ്രാദേശിക അന്തർദ്ദേശീയ വിഷയങ്ങളിൽ ആശയ കൈമാറ്റത്തിന് ചർച്ച വഴിയൊരുക്കും ഇന്ത്യൻ സംഘത്തെ വിദേശകാര്യമന്ത്രി എസ്

അമേരിക്കയെ പ്രതിനിധീകരിച്ച് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ പ്രതിരോധ സെക്രട്ടറി മാർക്ക് എസ്പെറും ചർച്ചയിൽ പങ്കെടുക്കും ഉഭയകക്ഷി സുരക്ഷാ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചില സുപ്രധാന കരാറുകളിൽ ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവയ്ക്കാൻ സാധ്യതയുണട് ഇന്ത്യ യു എസ് നയതന്ത്ര പങ്കാളിത്തത്തിന് അനുകൂലമായ ഒരു പുതിയ മാനം നൽകുന്നതിനായി കഴിഞ്ഞൂ വർഷമാണ് ടു പ്തസ് ടു മന്ത്രിതല സമ്മേളനം ആരംഭിച്ചതെന്ന്പ്പ് വിദേശകാരൃ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു

രാജ്യമെമ്പാടുമുള്ള പ്രാദേശിക വിൽപ്പനക്കാരെ ജെം വിപണിയ്ക്ക് കീഴിൽ കൊണ്ടുവരികയാണ് പരിപാടിയുടെ ഉദ്ദേശം കൊമേഴ്സ് സെക്രട്ടറി അനൂപ് വധാൻ പരിപാടി ഇന്നലെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മിശ്രീ വിജയ

പടിഞ്ഞാറൻ ഹിമാലയത്തിൽ ന്റിന്നുള്ള ശക്തമായ വടക്ക് പടിഞ്ഞാറൻ ശീതകാറ്റും മേഘങ്ങളിൽ പ്രദേശത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നത് തടഞ്ഞതാണ് ക കൃതാപ്പനില ഇത്രയും താഴാൻ കാരണമായത് ഉത്തരാഖണ്ഡിൽ തെളിഞ്ഞ ആകാശം കാണപ്പെട്ടെങ്കിലും തണുപ്പ് തുടരുകയാണ് ഉത്തർപ്രദേശിൽ താപനില സാധാരണയിലും താഴ്ന്നത് മിക്ക ഇടങ്ങളിലും ജന ജീവിതം തടസപ്പെടുത്തി സഹറൻപൂർ ബറേലി പിലിഭിത്ത് തുടങ്ങി നിരവധി ജില്ലകളിൽ സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്

ന്യൂസ്ഡെസ്ക് ആകാശവാണി

സ്വാതന്ത്ര്യാനന്തര മഹാരാഷ്ട്രയിലെ തീയറ്റർ പ്രസ്ഥാനത്തിന്റെ വികസനത്തിന് ഏറെ സംഭാവന നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹം

വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കറും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു

ഇന്നലെ ജമ്മുവിൽ ബ്ലോക്ക് വികസന കൌൺസിലിൽ അധ്യക്ഷൻമാർക്കായുള്ള ദിദിന പരിശീലന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്ലാനിംഗ് ഡെവലപ്മെന്റ് ബോർഡുകൾ സില്ലാപരിഷത് തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പുനസംഘടിപ്പിക്കുമെന്നും മുർമു പഞ്ചായത്തീ അറിയിച്ചു സ്ഥാപനങ്ങളെ രാജ് ശാക്തീകരിക്കുന്നതിലെ ഗവൺമെന്റിന്റെ പ്രതിജ്ഞാബദ്ധത ജനാധിപത്യ സംവിധാനത്തെ താഴെത്തട്ടിൽ നിന്നും ശക്തിപ്പെടുത്താൻ സഹായകമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ആനുകൂലൃങ്ങൾ ലഭൃമാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം തൊഴിലാളികൾക്ക് ചികിത്സാ ആനുകൂലൃങ്ങൾ നൽകുന്ന കാരൃത്തിൽ കേരളം വളരെ മുമ്പിലാണ് സംസ്ഥാനത്തെ ഇ

ഐ ആശുപത്രികൾ രാജ്യത്തിനാകെ മാതൃകയാണെന്നും കൊച്ചിയിൽ ദക്ഷിണേന്തൃൻ സംസ്ഥാനങ്ങളിലെ തൊഴിൽ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി മേഖലയിലെ ഇൌ തൊഴിലാളികളുടെ വേതനം ഉറപ്പാക്കാൻ കേന്ദ്രം നടപടികൾ സ്വീകരിച്ചുവരികയാണെന്ന് വിഭാഗം പറഞ്ഞു